പാക്കിസ്ഥാനെതിരായ യുദ്ധത്തിൽ വീരമൃത്യു വരിച്ചവരെ രാജ്യം ആദരിക്കും

കാസർകോട്ട് അഞ്ച് പൊലീസ് സ്റ്റേഷൻ പരിധിയിൽ നിരോധനാജ്ഞ തുടരുന്നു

ത ഖേലോ ഇന്ത്യ യൂത്ത് ഗെയിംസ് ഹരിയാനയിലെ പഞ്ച്കുളയിൽ നടത്താൻ തീരുമാനം വാർത്തകൾ വിശദമായി രാജ്യം ഇന്ന് കാർഗിൽ വിജയ് ദിവസ് ആഘോഷിക്കുന്നു

പിന്തുണയോടെ കാർഗിൽ മേഖലയിൽ നുഴഞ്ഞു കയറിയവരെ ഇന്ത്യൻ സേന തുരത്തിയത് യുദ്ധത്തിൽ നിർണായകമായ ടൈഗർ ഹിൽ അടക്കം ഇന്ത്യൻ പ്രദേശങ്ങളുടെ നിയന്ത്രണം രാജ്യം തിരിച്ചു പിടിച്ചു ധീരത ത്യാഗം ശൌര്യം എന്നിവയുടെ പ്രതീകമാണ് ഓപ്പറേഷൻ വിജയ് എന്ന് ഇന്ത്യൻ സേന ട്വിറ്ററിൽ പറഞ്ഞു

മറ്റു ജില്ലകളിലും കൂടുതൽ പേർക്കും സമ്പർക്കത്തിലൂടെയാണ് രോഗമുണ്ടായത്

രുമ കോവിഡ് പോസിറ്റീവായി കളമശേരി മെഡിക്കൽ കോളജിൽ പ്രവേശിപ്പിച്ചിരുന്ന കാൻസർ ബാധിതൻ മരിച്ചു

നാലുപേർ മെഡിക്കൽ കോളജിൽ ഗുരുതരാവസ്ഥയിൽ കഴിയുന്നതായി മെഡിക്കൽ കോളജ് നോഡൽ ഓഫീസർ അറിയിച്ചു

ചാലക്കുടി ടൌൺ പരിധിയിലെ വ്യാപാര സ്ഥാപനങ്ങൾ ഇന്നും അടഞ്ഞു കിടക്കും

രുമ ഇരിങ്ങാലക്കുട നഗരസഭയിലും മൂരിയാട് ഗ്രാമപഞ്ചായത്തിലും പ്രഖ്യാപിച്ച ട്രിപ്പിൾ ലോക്ക് ഡൌണിന്റെ ഭാഗമായി കോടതികളും പ്രവർത്തിക്കില്ലെന്ന് ജില്ലാ കളക്ടർ അറിയിച്ചു രണ്ടിടത്തും പെട്രോൾ പമ്പുകൾ സ്വകാര്യ വാഹനങ്ങൾക്ക് ഇന്ധനം നിറച്ചുനൽകരുതെന്നും നിർദേശമുണ്ട് രുമ കോഴിക്കോട് ജില്ലയിൽ ഇന്ന് സമ്പൂർണ ലോക്ക്ഡൌൺ ആയിരിക്കുമെന്ന് ജില്ലാ കലക്ടർ അറിയിച്ചു

മാളുകൾ സൂപ്പർമാർക്കറ്റുകൾ ഷോപ്പിംഗ് മാളുകൾ എന്നിവ തുറക്കാൻ പാടില്ല അവശ്യവസ്തുക്കൾ വിൽക്കുന്ന കടകളും മെഡിക്കൽ ഷോപ്പുകളും തുറക്കാവുന്നതാണ് വൈദ്യസഹായത്തിനും മറ്റ് അടിയന്തിര ആവശ്യങ്ങൾക്കുമല്ലാതെ യാത്ര ചെയ്യരുതെന്ന് ജില്ലാ ഭരണകൂടം നിർദേശിച്ചു

കോവിഡ് സ്ഥിരീകരിച്ച നീലേശ്വരം ബ്ലോക്ക് പഞ്ചായത്ത് അംഗവുമായി സമ്പർക്കം പുലർത്തിയ തൃക്കരിപ്പൂർ എം എൽ

രാജഗോപാലനും സി

എം സംസ്ഥാന കമ്മറ്റി അംഗം കെ

സതീഷ് ചന്ദ്രനും ഇന്നലെ നിരീക്ഷണത്തിൽ പ്രവേശിച്ചു സമൂഹ വ്യാപനം നിയന്ത്രിക്കാൻ ജില്ലയിലെ അഞ്ച് പൊലീസ് സ്റ്റേഷൻ പരിധികളിൽ നിരോധനാജ്ഞ നിലവിലുണ്ട്

കഴിഞ്ഞ ദിവസം ചാത്തന്നൂർ കുമ്മല്ലൂരിലെ ചികിത്സാ കേന്ദ്രത്തിൽ ഭക്ഷണം നൽകാനെന്ന പേരിൽ ചിലർ കടന്നു കയറിയതും ലഹരി വസ്തുക്കൾ കൈമാറിയതും ഗൌരവമായി കാണുമെന്നും ഇത്തരക്കാർക്കെതിരെ കർശന നടപടി സ്വീകരിക്കുമെന്നും കലക്ടർ പറഞ്ഞു രുമ കൊണ്ടോട്ടി മാർക്കറ്റുമായി ബന്ധപ്പെട്ട് ജോലി ചെയ്തവരിൽ ചിലർക്ക് കോവിഡ് രോഗബാധ സ്ഥിരീകരിച്ച സാഹചര്യത്തിൽ രോഗ പ്രതിരോധ നടപടികൾ ശക്തമാക്കിയതായും ജനങ്ങൾ പരിഭ്രാന്തരാകേണ്ട ആവശ്യമില്ലെന്നും മലപ്പുറം ജില്ലാ മെഡിക്കൽ ഓഫീസർ ഡോ

കൊണ്ടോട്ടിയെ പ്രത്യേക ക്ലസ്റ്റർ ആക്കി ആന്റിജൻ പരിശോധന നടത്തിവരുന്നുണ്ട്

അടിയന്തിര ചികിത്സ ഉറപ്പാക്കാനും കോവിഡ് പരിശോധനയ്ക്ക് ആവശ്യമായ സാമ്പിളുകൾ ശേഖരിക്കാനും വേണ്ടിയാണ് ടീമിന്റെ രൂപീകരണം രുമ ഇടുക്കി ജില്ലയുമായി സംസ്ഥാന അതിർത്തി പങ്കിടുന്ന കുമളി മുതൽ മറയൂർ കരിമുട്ടി വരെ അതിർത്തി പ്രദേശങ്ങളിൽ തമിഴ്നാട്ടിൽ നിന്നും ആളുകളുടെ അനധികൃത കടന്നുകയറ്റം തടയുന്നതിന് പൊലീസ് പ്രത്യേക നിരീക്ഷണം ഏർപ്പെടുത്തി വനം വകുപ്പുമായി ചേർന്ന് അതിർത്തി പ്രദേശങ്ങളിലെ നടപ്പാതകളിൽ സംയുക്ത പട്രോളിംഗ് നടത്താനും നടപടി സ്വീകരിച്ചതായി ജില്ല പോലീസ് മേധാവി അറിയിച്ചു അതിർത്തി കടന്നുവരുന്നവരിലൂടെ കോവിഡ് വ്യാപനം വർധിക്കുന്നുവെന്ന വിലയിരുത്തലിന്റെ അടിസ്ഥാനത്തിലാണ് നടപടി

ആകാശവാണിയുടെയും ദൂരദർശന്റെയും എല്ലാ നിലയങ്ങളും പരിപാടി തൽസമയം പ്രക്ഷേപണം ചെയ്യും ഇതിന് പുറമെ ന്യൂസ് ഓൺ എയർ വെബ്സൈറ്റിലും മൊബൈൽ ആപ്പിക്കേഷനിലും ആകാശവാണിയുടെയും ദൂരദർശന്റെയും യൂട്യൂബ് ചാനലുകളിലും മൻ കി ബാത് ഉണ്ടായിരിക്കും പ്രധാനമന്ത്രിയുടെ ഹിന്ദി പ്രഭാഷണത്തിന് ശേഷം കേരളത്തിലെ നിലയങ്ങൾ മലയാള പരിഭാഷയും പ്രക്ഷേപണം ചെയ്യും രാത്രി എട്ടിന് ഇതിന്റെ പുനപ്രക്ഷേപണവും കേൾക്കാം രേര തെരുവോര കച്ചവടക്കാരുടെ ക്ഷേമത്തിനായി കേന്ദ്ര നഗര കാര്യ മന്ത്രാലയം നടപ്പാക്കുന്ന പ്രധാൻ മന്ത്രി സ്ട്രീറ്റ് വെൻഡേഴ്സ് ആത്മ നിർഭർ നിധി പ്രധാനമന്ത്രി നരേന്ദ്രമോദി അവലോകനം ചെയ്തു

രമേ നാലാമത് ഖേലോ ഇന്ത്യ യൂത്ത് ഗെയിംസ് ഹരിയാനയിൽ നടത്തുമെന്ന് കേന്ദ്ര കായിക മന്ത്രി കിരൺ റിജിജു അറിയിച്ചു അടുത്ത വർഷത്തെ ടോക്കിയോ ഒളിമ്പിക്സിന് ശേഷമായിരിക്കും ഹരിയാനയിലെ പഞ്ച്കുളയിൽ ഗെയിംസ് നടക്കുന്നത് രുഭ തിരുവനന്തപുരം സ്വർണക്കടത്ത് കേസിൽ മുഖ്യമന്ത്രിയുടെ മുൻ പ്രിൻസിപ്പൽ സെക്രട്ടറി എം ശിവശങ്കറിനെ ദേശീയ അന്വേഷണ ഏജൻസി നാളെ വീണ്ടും ചോദ്യം ചെയ്യും

കാർഗിൽ വിജയ് ദിവസ് ആചരണത്തിന്റെ ഭാഗമായി ഇന്ന് പൂർവ്വ സൈനിക സേവ പരിഷത് കണ്ണൂരിലെ യുദ്ധസ്മാരകത്തിൽ പുഷ്പചക്രം അർപ്പിക്കും കാർഗിൽ യുദ്ധത്തിൽ വീരമൃത്യു വരിച്ചവർക്ക് ചടങ്ങിൽ ആദരാഞ്ജലി അർപ്പിക്കും